ത സംസ്ഥാന ഗവൺമെന്റ് ഇന്ന് ഭരണത്തിന്റെ അഞ്ചാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു വാർത്തകൾ വിശദമായി കോവിഡ് അനന്തര സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി കേരളത്തിലേക്ക് കൂടുതൽ വ്യവസായ നിക്ഷേപങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

അതിനായി എംബസികളുമായി ഗവൺമെന്റ് ബന്ധപ്പെട്ടുവരികയാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പുതിയ പരിഷ്ക്കരണങ്ങളും മാറ്റങ്ങളും കൊണ്ടുവന്ന് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റാൻ കഴിയണം അതിന് വിദ്യാഭ്യാസ രംഗത്ത് പൊളിച്ചെഴുത്താവശ്യമാണെന്ന് മുഖ്യമന്ത്രി പ്രതിവാര ടെലിവിഷൻ സംവാദ പരിപാടിയായ നാം മുന്നോട്ടിൽ പറഞ്ഞു കാർഷിക സ്വയംപര്യാപ്തത നേടിയെടുക്കാൻ തരിശ് ഭൂമിയിലെ കൃഷിക്ക് പദ്ധതി തയാറാക്കിയിട്ടുണ്ട് കുടുംബശ്രീ സ്വയംസഹായ സംഘങ്ങൾ കൂട്ടായ്മകൾ എന്നിവയ്ക്ക് കാർഷിക രംഗത്തേക്ക് കടന്നുവരാൻ തദ്ദേശ സ്ഥാപനങ്ങൾ അവസരമൊരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ആലപ്പുഴ എറണാകുളം പാലക്കാട് ജില്ലകളിൽ നാലുപേർക്ക് വീതവും കൊല്ലം ജില്ലയിൽ മൂന്ന് പേർക്കും പത്തനംതിട്ടയിൽ രണ്ട് പേർക്കും കോഴിക്കോട്ട് ഒരാൾക്കുമാണ് രോഗം ഒരു തമിഴ്നാട് സ്വദേശിക്കും രോഗബാധയുണ്ടായി

അഞ്ച് പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി കെ

എസ്എസ്എൽസി ഹയർ സെക്കന്ററി പരീക്ഷകൾ മുൻ നിശ്ചയപ്രകാരം നടക്കും എന്നാൽ നാലുപേരിൽ കൂടുതൽ സംഘം ചേരുന്നത് കർശനമായി തടയും ആരോഗ്യ വകുപ്പ് കോവിഡ് നിയന്ത്രണത്തിന് ഏർപ്പെടുത്തിയ നിർദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും അധികൃതർ നിർദേശിച്ചു

ഇൻഡോർ ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്ന് എത്തിയ മൂന്ന് പേർക്കും വാളയാർ ചെക്പോസ്റ്റിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന തൃശൂർ പഴയന്നൂർ സ്വദേശിനിയായ ആരോഗ്യപ്രവർത്തകയ്ക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്

മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം എറണാകുളം ജില്ലയിൽ ഇന്നലെ നാലുപേരിൽ കോവിഡ് കണ്ടെത്തി എല്ലാവരും വിദേശത്തുനിന്ന് വിമാനത്തിൽ കൊച്ചിയിലെത്തിയവരാണ് കോഴിക്കോട്ട് ദുബായിയിൽ നിന്ന് കണ്ണൂരിലെത്തിയ ഒരാൾക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്

ഇന്നലെ കോവിഡ് ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരിച്ച കൽപ്പറ്റ സ്വദേശിനി ആമിനയുടെ മൃതദേഹം കോഴിക്കോട് കണ്ണംപറമ്പ് ജുമാ മസ്ജിദ് കബർസ്ഥാനിൽ അർബുദമുൾപ്പെടെ ആരോഗ്യ പ്രശ്നങ്ങൾ കബറടക്കി ആമിനക്കുണ്ടായിരുന്നു രുര കൊല്ലം ജില്ലയിലെ ഹോട്സ്പോട്ടായ കല്ലുവാതുക്കൽ പഞ്ചായത്തിൽ ഒരു യുവതിക്ക് രോഗം സ്ഥിരീകരിച്ചതോടെ വീണ്ടും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ശനിയാഴ്ച്ച നീക്കിയ നിയന്ത്രണമാണ് പുനഃസ്ഥാപിച്ചത് കുളത്തൂപ്പുഴ തെൻമല ആര്യങ്കാവ് പഞ്ചായത്തുകളിലും നിയന്ത്രണമുണ്ട്

ദരര രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ ആഭ്യന്തര സർവ്വീസുകൾ പുലർച്ചെ പുനരാരംഭിച്ചു ലോക്ഡൌണിൽ നിർത്തിവെച്ച സർവ്വീസുകൾ നീണ്ട ഇടവേളക്ക് ശേഷമാണ് വീണ്ടും തുടങ്ങുന്നത്

കൊച്ചി വിമാനത്താവളത്തിലും കരിപ്പൂർ കണ്ണൂർ തിരുവനന്തപുരം വിമാനത്താവളങ്ങളിലും ആഭ്യന്തര സർവ്വീസുകൾക്ക് വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു യാത്രക്കാർ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് കോവിഡ് ലക്ഷണങ്ങൾ ഇല്ലെന്ന സാക്ഷ്യപത്രം ഹാജരാക്കേണ്ടതാണ്

കരിപ്പൂരിൽ രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് എയർ ഇന്ത്യ വിമാനം എത്തുന്നതോടെ ആഭ്യന്തര സർവ്വീസിന് തുടക്കമാകും യാത്രക്കാരെ സ്പർശിക്കാതെ പൂർണ സാമൂഹിക അകലം പാലിച്ചായിരിക്കും ചെക്ക് ഇനും ബോർഡിങ്ങും

ആരോഗ്യപരിശോധനയ്ക്കു ശേഷം കോവിഡ് സ്ഥിരീകരിച്ച കോഴിക്കോട് സ്വദേശിയെയും മറ്റ് ആരോഗ്യപ്രശ്നങ്ങൾ കണ്ടെത്തിയ തിരുവനന്തപുരം സ്വദേശിയെയും കോഴിക്കോട് മെഡിക്കൽ കോളജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു

രമേ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിയപോയ മലയാളികളെ തിരികെയെത്തിക്കാൻ ഇന്ന് മൂന്ന് പ്രത്യേക വിമാനങ്ങൾ കരിപ്പൂരിലെത്തും ബെങ്കലൂരു മുംബൈ തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്നാണ് എയർ ഇന്ത്യ പ്രത്യേക സർവ്വീസ് നടത്തുന്നത്

രുര മഹാരാഷ്ട്രയിലെ പൊതുമരാമത്ത് മന്ത്രിയും മുൻ മുഖ്യമന്ത്രിയുമായ അശോക് ചവാന് കോവിഡ് സ്ഥിരീകരിച്ചു

രുദ മഹാരാഷ്ട്രയിലെ താനെയിൽ നിന്ന് ഇന്നലെ കേരളത്തിലേക്ക് പുറപ്പെടാനിരുന്ന പ്രത്യേക ട്രെയിൻ സർവ്വീസ് മാറ്റിവെച്ചു യാത്രക്കാരുടെ വിവരം നേരത്തെ ലഭ്യമാക്കാത്തതിനാൽ സംസ്ഥാന ഗവൺമെന്റിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് യാത്ര മാറ്റിയത്

കോവിഡ് വ്യാപന സാഹചര്യത്തിൽ ആഘോഷങ്ങൾ ഒന്നുമില്ലാതെയാണ് പിണറായി ഗവൺമെന്റ് ഭരണത്തിന്റെ അവസാന വർഷത്തിലേക്ക് കടക്കുന്നത് രണ്ട് പ്രളയങ്ങളുടേയും ഓഖി ചുഴലിക്കാറ്റിന്റേയും നിപ ബാധയുടേയും വിഷമഘട്ടങ്ങൾ മറികടന്നെത്തിയ ഗവൺമെന്റിന് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത് കോവിഡ് മഹാവ്യാധിയാണ്

രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ജനങ്ങൾക്ക് ഈദ് ആശംസകൾ നേർന്നു കേരളത്തിലും ഗൾഫ് രാജ്യങ്ങളിലും ഇന്നലെയായിരുന്നു ചെറിയ പെരുന്നാൾ രുമ കൊല്ലം അഞ്ചലിൽ പാമ്പുകടിയേറ്റ് യുവതി മരിച്ച സംഭവം കൊലപാതകമാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി പാമ്പുപിടിത്തക്കാരനിൽ നിന്ന് വാങ്ങിയ പാമ്പിനെ കൊണ്ട് ഉത്തരയെ കടിപ്പിക്കുകയായിരുന്നുവെന്ന് ചോദ്യം ചെയ്യലിൽ ഭർത്താവ് സൂരജ് സമ്മതിച്ചതായി പൊലീസ് പറഞ്ഞു

മന്ത്രി എം

ഡീൻ കുര്യാക്കോസ് എംപിയും റോഷി അഗസ്റ്റിൻ എംഎൽഎയും ഗ്രാമസഭയിൽ ഓൺലൈനായി പങ്കെടുത്തു രേര വിദേശത്ത് കുടുങ്ങിപ്പോയ ഇന്ത്യക്കാർക്കും വിദേശത്തേക്ക് പോകേണ്ടവർക്കും യാത്രക്കാവശ്യമായ മാർഗനിർദേശങ്ങൾ ആഭ്യന്തരമന്ത്രാലയം പുറപ്പെടുവിച്ചു വിദേശങ്ങളിൽ കുടുങ്ങിയവർ ബന്ധപ്പെട്ട ഇന്ത്യൻ നയതന്ത്ര സ്ഥാപനത്തിൽ രജിസ്റ്റർ ചെയ്യണം

ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പോകേണ്ടവർ വ്യോമമന്ത്രാലയത്തിനോ അവർ ചുമതലപ്പെടുത്തിയ ഏജൻസിക്കോ അപേക്ഷ നൽകേണ്ടതാണ്